ജെ പി ഗവൺമെന്റ് നാളെ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് സുപ്രീംകോടതി

രഹസ്യബാലറ്റ് പാടില്ലെന്നും സുതാര്യമായ വോട്ടെടുപ്പ് നടത്താനും കോടതി ആവശ്യപ്പെട്ടു

നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി എം എൽഎമാർ സത്യപ്രതിജഞ ചെയ്യണം

സി

മാരുടെ പിന്തുണയുണ്ടെന്നവകാശപ്പെട്ട് ഫഡ്നവിസ് നൽകിയ കത്തും അതിന്റെയടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഗവൺമെന്റുണ്ടാക്കാൻ ക്ഷണിച്ചു ഗവണറുടെ കത്തും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു അജിത് പവാറിനെ നിയമസഭാകക്ഷിനേതാവായി തിരഞ്ഞെടുത്തുകൊണ്ട് എൻ സി

ഇന്നലെ ഇരുപക്ഷത്തിന്റേയും വാദം കേട്ട ശേഷം വിധി പറയുന്നത് കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിശ്വാസവോട്ടെടുപ്പിൽകോൺഗ്രസ്സഖ്യംവിജയിക്കുമെന്നും ശ്രീമതിസോണിയ പറഞ്ഞു ശിവസേന കോൺഗ്രസ് എൻസിപി സഖ്യത്തിന് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന്മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥിരാജ് ചവാൻ പറഞ്ഞു

ബഹുമാനിക്കുന്നതായിമഹാരാഷ്ട്ര ബിജെപി അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു സഭയിൽ ബിജെപി ഭൂരിപക്ഷം തെളിയിക്കുമെന്നുംഅദ്ദേഹംവൃക്തമാക്കി

രാജ്യത്തിലെ പ്രിര്യൻമാരുടെ അവകാശങ്ങൾക്കൊപ്പം ചുമതലകളും പ്രോത്സാഹിഷ്ടിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതയെന്ന് പ്രധാന്ദ്രമുന്തി ്നരേന്ദ്രമോദി പറഞ്ഞു

ഭരണഘടനവിഭാവനം ചെയ്യുന്ന ചുമതല രാജ്യത്തെ പൌരൻമാർ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

കേരളത്തിൽ സ്ത്രീധനവിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് വനിത ശിശുവികസന വകുപ്പ് ആവിഷ് ക്കരിച്ചിരിക്കുന്നത്

ഡൽഹി ദേശീയ തലസ്ഥാന നഗര മേഖലയിൽ മലിനീകരണം ചെറുക്കുന്നതിനായി സ്മോഗ് ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ പത്ത് ദിവസത്തിനകം തീരുമാനം എടുക്കാനും സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിൽ വ്യോമസേന കമാൻഡർമാരുടെ ദൈവാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശീയമായി ആയുധങ്ങൾ രൂപകൽപ്പിനിചെയ്യുന്നതിന് വ്യോമസേന കമാന്റർമാർ എടുക്കുന്ന പ്രെയ്തനങ്ങളെ രാജ്യരക്ഷാമന്ത്രി അഭിനന്ദിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രി രാജ് നാഥ് സിംഗ് എന്നിവർ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു വസുധൈവ കുടുംബകം എന്ന ഇന്ത്യയുടെ ആശയത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു മുംബൈ ഭീകരാക്രമണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഭീകരത മാനുഷികതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും അതിനെ ഒരുമിച്ച് നിന്നാൽ ഉൻമൂലനം ചെയ്യാമെന്നും മന്ത്രി ടിറ്ററിൽ കുറിച്ചു മഹാരാഷ്ട്ര ഗവർണർ ഭഗത്സിംഗ് കോഷിയാരി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി കെന്നത്ത് ജസ്റ്റർ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഭീകരതക്ക് എതിരെ ശക്തവും യോജിച്ചതുമായ നിലപാട് സ്വീകരിക്കണമെന്ന് കെന്നത്ത് ജസ്റ്റർ ആവശ്യപ്പെട്ടു

വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് മുന്നിൽ ഇന്ത്യൻ വംശജരും അമേരിക്കൻ പൌരൻമാരും സംയുക്തമായി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു

റെയിൽവേ സ്റ്റേഷൻ താജ് ഹോട്ടൽ നരിമാൻ ഹൌസ് ഉൾപ്പെട്ടെയ്യുള്ള വിവിധ സ്ഥലങ്ങളിലാണ് ഭീകരർ ആക്രമണം നടത്തിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത മാസംമൂന്നിനാണ് നാമനിർദ്ദേശ പത്രികസമർപ്പിക്കാനുള്ള അവസാന ദിനം

ലോകമെമ്പാടുമുള്ള മികച്ച സംവിധായകരുടെ സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് രജതചകോരത്തിന് ഏഴ് സിനിമകളാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് പനാജിയിലെ കലാഅക്കാദമിയിൽ ഇന്ന്രാവിലെ പ്രദർശിപ്പിച്ച റൊമാനിയൻ ചിത്രം കാണാൻ സിനിമാ ആസ്വാദകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ന്വൈകുന്നേരം മനു അശോകൻ സംവിധാനം ചെയ്തമലയാള ചിത്രമായ ഉയരെ മേളയിൽ പ്രദർശിപ്പിക്കും

ബെയ്ജിംഗിലെ അമേരിക്കൻ അംബാസിഡറെ വിളിച്ചുവരുത്തിയാണ് ചൈനീസ് ഗവൺമെന്റ് പ്രതിഷേധം അറിയിച്ചത് ഷ്യോക്കോംഗിലെ പ്രക്ഷോഭങ്ങളെ അനുകൂലിച്ച് അമേരിക്കൻ പാർല്ല്മിങ്ങിട്ന്റെ ഇരുസഭകളും നിയമം പാസാക്കിയിരുന്നു ഇതാണ് ഇതേ വിഷയത്തിൽ രണ്ടാം തവണ്ടുയാണ് അമേരിക്കൻ അംബാസിഡറെ ചൈന വിളിച്ചുവരുത്തുന്നത്ത് ് അമേരിക്കൻ പാർലമെന്റ് ഐകകണ്ഠ്യേന പാസാക്കിയ നിയമം പ്ര്യ്സിഡന്റ് ഡോണൾഡ് ട്രംപ് ഒപ്പിടുന്നതോടെ പ്രാബല്യത്തിൽ വരും

സമാധാനപരമായ തീർത്ഥാടനത്തെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഗവൺമൻ്റ്കൂട്ടുനിൽക്കില്ലെന്നു മന്ത്രി പറഞ്ഞു ശബരിമലയിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി എ

ബാലനും അറിയിച്ചു